ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും

പിപിധ ഇനങ്ങളിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യ ഇന്ന് ഫൈനലിൽ മൽസരിക്കും

സാധാരണക്കാരെ വളരെ വേഗത്തിൽ സാമ്പത്തിക ശൃംഖലയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് സഹായിക്കുന്ന വിശ്വസ്തവും പ്രാപ്തവും പ്രാപൃവുമായ സാമ്പത്തിക സ്ഥാപനമായാണ് ഇന്ത്യാ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ മുക്കും മൂലയും ഉൾപ്പെടുത്തിയുള്ള പോസ്റ്റൽ വിഭാഗത്തിന്റെ വിസ്തൃതമായ ശൃംഖലയും മൂന്ന് ലക്ഷത്തിലധികം വരുന്ന പോസ്റ്റ്മാൻ ഗ്രാമീൺ ഡാക് സേവക്മാർ എന്നിവരുടെ സേവനവും പരമാവധി ഇതിനായി പ്രയോജനപ്പെടുത്താൻ ആവുമെന്നാണ് കരുതുന്നത്

എൻഡ്ിഎ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങളാണ് ആഭ്യന്തര ഇല്പാദന വളർച്ചയിൽ പ്രതിഫലിച്ചതെന്ന് ധനകാര്യ സെക്രട്ടറി ഹസ്മുഖ് ആദ്യ പറഞ്ഞു ജി എസ് ടി പരിഷ്ക്കരണം സാമ്പത്തിക മേഖലയ്ക്ക് വൻ ഉണർവാണ് നൽകിയിരിക്കുന്നത്

നിലവിലുള്ള വളർച്ചാ നിരക്കിനെ ത്വരിതപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാകുമെന്നും ധനമന്ത്രാലയം സൂചന നൽകി

ഇന്നലെയായിരുന്നു രാജ്യത്ത് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാനദിനം

വികസന മുന്നേറ്റമുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്നും ഇദ്ദേഹം പറഞ്ഞു ഭുവനേശ്വറിൽ കമ്പനി സെക്രട്ടറിമാരുടെ ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വികസന രംഗത്ത് രാജ്യത്തിന്റെ വളർച്ചയെ ആർക്കും തടയാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്ത് പരിവർത്തനം വരുത്താൻ കമ്പനി സെക്രട്ടറിമാർക്ക് നിർണ്ണായക പങ്ക് വഹിക്കാനാകുമെന്നും മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു

സെപ്റ്റംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ മാത്രം ബാങ്ക് അവധിയായിരിക്കും ഓൺലൈൻ ബാങ്കിംഗ് ഇടപാടുകളും എ ടി

ടി എം കളിൽ പര്യാപ്തമായ പണം ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രാലയം പറഞ്ഞു

നെതർലാൻഡ്സിലെ മഹാലിഷ്ടി ആയുർവേദ ഫൌണ്ടേഷൻ ന്യൂഡൽഹിയിലെ ആൾ ഇന്ത്യ ആയുർവേദിക് കോൺഗ്രസ് പൂനെയിലെ ഇന്റർ നാഷണൽ അക്കാദമി ഓഫ് ആയുർവേദ എന്നിവരുടെ കൂടി പങ്കാളിത്തതോടെയാണ് സമ്മേളനം നടക്കുന്നത്

നെതർലാൻഡിലും അയൽരാജ്യമായ യൂറോപ്പിലും ആയുർവേദത്തിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുകയാണ് ആയുർവേദ കോൺഗ്രസിന്റെ ലക്ഷ്യം

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

പ്രാദേശിക സമൂഹങ്ങൾക്ക് ഉപജീവനമാർഗങ്ങൾ ലഭ്യമാക്കുന്നതാണ് നയത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി വിനോദ സഞ്ചാരികൾക്ക്ബോധവൽക്കരണം നൽകുകയും അവർക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രാദേശിക സമൂഹങ്ങളുടെ ശേഷി വികസനത്തിനായി പ്രത്യേകമായ പരിശീലനം നൽകുമെന്നും പരിസ്ഥിതി മന്ത്രി ഹർഷ് വർദ്ധൻ പറഞ്ഞു തദ്ദേശവാസികൾക്ക് ടൂറിസ്റ്റ് ഗൈഡുകളായോ പ്രകൃതി ശാസ്ത്ര വ്യാഖ്യാതാവായോ പരിശോധനാ പങ്കാളികളായോ ജോലി ചെയ്യാവുന്നതാണ് വനത്തിൽ നിന്നകന്ന് കഴിയുന്ന വനവാസികളുടെയും വനാതിർത്തികളിൽ കഴിയുന്നവരുടെയും ന്യൂജീവ പങ്കാളിത്തമാണ് നയം ലക്ഷ്യമിടുന്നതെന്നും ഡോ

പ്രാദേശിക സമൂഹങ്ങളെ ഉൾപ്പെട്ടുത്ത്വ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥ പരിപോഷിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ സ്ഥായിയായ ഉപയോഗം വർദ്ധിപ്പിക്കുകയിട്ടുമാണ് നയത്തിന്റെ പ്രധാന ഉദ്ദേശമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ്ഡസ്ക് ആകാശവാണി

പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യൽ ഉൾപ്പെടുത്തൽ മാറ്റം വരുത്തൽ എന്നിവയ്ക്കായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഞായറാഴ്ചകളിൽ പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തും

ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് പതിനായിരം രൂപ വീതം ബാങ്ക് മുഖേനയാണ് വിതരണം ചെയ്യുന്നത്

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ഏഷ്യൻ ഗെയിംസിലെ ആകെ മെഡലുകളുടെ എണ്ണത്തിൽ ഇന്ത്യ റെക്കോഡിനൊപ്പമെത്തി

മൽസരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ആകാശവാണി തൽസമയം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒക്ടോബർ ഒന്നിനും അഞ്ചിനും ഇടയിലായി നാല് ഘട്ടങ്ങളിലായി മുൻസിപ്പൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ നടക്കും നവംബർ എട്ടിനും ഡിസംബർ നാലിനും മദ്ധ്യേ എട്ട് ഘട്ടങ്ങളിലായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും നടക്കും സംസ്ഥാന ഗവർണ്ണർ സത്യപാൽ മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണകൌൺസിൽ വിവിധ വകുപ്പുകളുമായി വിശദമായ കൂടിയാലോചനകൾ നടത്തി സുരക്ഷയും തെരഞ്ഞെടുപ്പ് അത്യാവശ്യങ്ങളും മുന്നിൽക്കണ്ട് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ സജ്ജമാക്കാൻ സംസ്ഥാനത്തെ മൂഖ്യ തെരഞ്ഞെടൂപ്പ് ഓഫീസിറോട് ആവശ്യപ്പെട്ടു അപകട സാധൂത കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് ജോലികൾ നിർവ്വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ഒരു മാസത്തെ വേതനം നൽകാനും സംസ്ഥാന ഭരണ കൌൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്

വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവാർഡുകൾ കരസ്ഥമാക്കിയ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് പ്രണയം സാഹസികത തുടങ്ങി സിനിമാ പ്രേമികൾക്ക് ് താൽപര്യമുള്ള വ്യത്യസ്ത വിഷയങ്ങളാണ് ഇത്തവണ്ട്ടിൽച്ചിത്രോൽസവത്തിൽ ഒരുക്കിയത്

ആരോഗ്യമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ലോകാരോഗ്യ സംഘടന പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി